പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ് റേഡിയോ പരി പാടി മൻ കി ബാത്ത് നാളെ കെ എസ് ആർ ടി സിയുടെ പുന്നരുദ്ധാരണത്തിന് മാനേ ജ്മെന്റും ജീവനക്കാരും ഗവൺമെന്റും ചേർന്ന് കരാറുണ്ടാ ക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഐഎസ് എൽ ഫുട്ബ്പോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഇൌസ്റ്റ് യൂണൈറ്റഡുമായി ഏറ്റുമു ട്ടും ദേശീയ ബ്ധിര കായികമേളയിൽ കേരളം മുന്നിൽ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് തന്റെ ഉത്തരവാദിത്വ മെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ പറഞ്ഞു

പൌരത്വ നിയമ ഭേദഗ തിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ഗവ തയ്യാറാണെന്നും എന്നാൽ പ്രതിഷേധക്കാർ ചർച്ചക്ക് തയ്യാറാകുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു എൺപതാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യയിലെ പ്രമുഖരായ ചരിത്രകാരന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും ചരിത്ര കോൺഗ്രസ് മറ്റ ന്നാൾ സമാപിക്കും ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ ഗവർണർ സംസാരിക്കുന്നതിനിടെ വേദിയിൽ നിന്ന് പ്രതിഷേധിച്ച നാല് പേരെ പോലിസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ ഒരു ഡെലിഗേറ്റും ഉൾപ്പെടും ഇതേ തുടർന്ന് ഗവർണർക്ക് പ്രസംഗം പൂർത്തീകരി ക്കാനായില്ല

പൊതുമേഖലാ ബാങ്ക് മേധാവികളുമായി ധനമന്ത്രി നിർമലാ സീതാരാമൻ ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള വായ്പ്പ റുപേ ക്രഡിറ്റ് കാർഡ് തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ച്ചയിൽ ചർച്ചയാകും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടുത്തിടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച വിവിധ നട്ടപടികളുടെ പുരോഗതിയും യോഗം അവലോകനം ചെയ്യും പ്രതിമാസ റേഡിയോ പ്രഭാഷണ് പരമ്പരയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ന്ത്രേന്ദ് മോദി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും

കെഎസ്ആർടിസിയുടെ പുനഃരുദ്ധാരണത്തിന് മാനേജ്മെന്റും ജീവനക്കാരും ഗവൺമെൻ്റും ചേർന്ന് കരാറുണ്ടാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഓരോ വിഭാഗവും ചെയ്യേണ്ട കാര്യ ങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വൃക്തമാക്കി കെഎ സ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി സംബന്ധിച്ച് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നട ത്തിയശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെഎസ്ആർടിസി ജീവനക്കാരുടെ ജനുവരിയിലെ ശമ്പളം അഞ്ചാംതിയ്യതിക്ക് മുമ്പ് വിതരണം ചെയ്യുമെന്നും കിഫ്ബി സഹാ യത്തോടെ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുമെന്നും എ കെ ശശീ ന്ദ്രൻ വ്യക്തമാക്കി

മന്ത്രി എ കെ ശശീ ന്ദ്രനുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിയത്

ദേശീയപാത അതോറിറ്റിയുടെ നിലപ്പാട് മൂലമാണ് ദേശീയപാത ആറുവരിയായി വികസിപ്പിക്കുന്നത് വൈകുന്നതെന്ന് മന്ത്രി ജി

കൊല്ലം ബൈപ്പാസിൽ സ്ഥാപിച്ച തെരുവുവിളക്കുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത ആറുവരിയാക്കു്ന്നതുമായി ബന്ധപ്പെട്ട നടിപടികൾ സംസ്ഥാനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വൃക്തമാക്കി

പൌരത്യാനിയമ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത് രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും

യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് പ്രമുഖ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് ഭരണഘടന സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാന മുണ്ടായേക്കും മുഖ്യ മന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുമെന്ന് കെ പി സിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ പറഞ്ഞു യോഗത്തെ പാർട്ടി വളരെ ഗൌരവ ത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യ മങ്ങളോട് പറഞ്ഞു

ഭോപ്പാലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമ ഭേദഗതി കാലത്തിന്റെ ആവശ്യമാണെന്നും രാജ്യത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട ന്യൂനപ്പക്ഷ്യങ്ങൾക്ക് പൌരത്വ ഭേദഗതി നിയമം നീതി ലഭ്യമാക്കുമെന്ന് ക്വേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പറഞ്ഞു ഈ നിയമത്തെ എതിർത്ത് അക്രമം പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസും ഇടതുപാർട്ടികളും ചില ബുദ്ധിജീവികളും പ്രവർത്തിക്കുന്നു തെന്ന് അദ്ദേഹം ഭോപ്പാലിൽ പറഞ്ഞു ഈ പാർട്ടിക്ളെ ബിജെപി പ്രവർത്തകർ തുറന്നുകാട്ടുമെന്നും പുൌരതി നിയമത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാ ക്കുമെന്നും തോമർ പറഞ്ഞു

ഇതോടനുബന്ധിച്ച് ഭരണഘടന സംരക്ഷിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നു മുദ്രാവാക്യമുയർത്തി രാജ്യവ്യാപകമായി പാർട്ടി പ്രവർത്തകർ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാ ഗാന്ധി പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണ പരിപാടി കൾക്ക് തുടക്കമായത് പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി ഡോ മൻമോഹൻ സിംഗ് എ കെ ആന്റണി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു പൌരത്വ നിയമ ഭേദഗതി ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു ഇന്ത്യയിൽ ഒരു കാലത്തും മതത്തെ പൌരത്വത്തിന് അടിസ്ഥാനമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ വ്യക്തമാക്കി

കേന്ദ്രമന്ത്രിസഭ അംഗീ കരിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് നയപ്രഖ്യാപനം കോൺഗ്രസ് പൌരത്വനിയമവും എൻആർസിയും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി സി സി യുടെ നേതൃത്വത്തിൽ പൌരത്വ നിയമ ഭേദഗതി യ്ക്കെതിരെ തിരുവനന്തപുരത്ത് മഹാറാലിയും പ്രതിഷേധ സംഗ മവും നടത്തി

മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം മാർച്ചിന് നേതൃത്വം നൽകി എൻ സിപി അധ്യക്ഷസ്ഥാനം സർബന്ധിച്ച ചർച്ചുകൾ ആരംഭി ച്ചിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മന്ത്രിസ്ഥാനം കൈമാ റുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയില്ലെന്നും അദ്ദേഹം തിരുവ നന്തപുരത്ത് വ്യക്തമാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിന്റെ പിടിയിൽ

കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നാല് വിമാ നങ്ങൾ ്വഴിതിരിച്ചുവിട്ടു നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത് ജമ്മു കശ്മീർ ശ്രീനഗർ എന്നിവിടങ്ങളിലും അതിശൈത്യമാ ണ്

ഉത്തരേന്ത്യയിൽ അതിശൈത്യം രണ്ട് ദിവസം കൂടി തുരടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് കൊച്ചിയിലാണ് മത്സരം

പ്പേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയം അനിവാര്യമാണ്

അഞ്ച് പോയിന്റ് വീതം നേടി രാജസ്ഥാനും കർണ്ണാടകയും ഒപ്പത്തിനൊപ്പമാണ്

അത്ലറ്റിക്സ് ഫുട്ബാൾ മത്സരങ്ങൾ മെഡിക്കൽ കോളജ് സ് റ്റേഡിയത്തിലും വോളിബാൾ ബാഡ്മിൻ്റൺ ടേബിൾ ടെന്നീസ് ജൂഡോ റസലിംഗ് മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിലുമാണ് നടക്കുന്നത്

ഖരമാലിന്യം സംസ്കൃരിച്ച് ഒ്വെദ്യുതി ഉത്പാദിപ്പിക്കുന്ന ആദ്യ പ്ലാന്റ് കോഴിക്കോട് ഞെളിയ്ൻ പറമ്പിൽ അടുത്ത മാസം ആറിന് മുഖ്യമന്ത്രി പിണ്ഠായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായിരിക്കും കോഴിക്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉഡാൻ പദ്ധതി വഴി ന്യൂഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ എയർലൈൻ സർവ്വീസിന്റെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടു ത്തണമെന്ന് എം കെ രാഘവൻ എം പി കേന്ദ്ര വ്യോമയാന മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ഉഷ പാഡിയോട് ആവശ്യപ്പെട്ടു ഉഡാൻ ചുമതല വഹിക്കുന്ന വ്യോമയാന ജോയിന്റ് സെക്രട്ടറിയുടെ കോഴിക്കോട് സന്ദർശന വേളയിലാണ് എം

ഉഡാൻ ത്വരിതപ്പെടുത്തുന്നതിനായി എല്ലാവിധ നടപടിക്രമങ്ങളും ഉടൻ പൂർത്തീകരിക്കുമെന്നും ജോയിന്റ് സെക്രട്ടറി എം പി യെ അറിയിച്ചു

സംസ്ഥാനത്ത് ജനുവരി ഒന്ന് മുതൽ പ്ലാസ്റ്റിക്ക് നിരോധനം നിലവിൽ വരുന്ന പശ്ചാത്തലത്തിൽ ബദൽ ഉല്പന്നങ്ങളുടെ പ്രചാരണത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ ഫ്രഷ്ബാഗ് വിപണിയിലിറക്കും

പത്ത് മുതൽ നൂറ് രൂപ വരെ വിലയുള്ള തുണിസഞ്ചികൾ യൂണിറ്റുകളിൽ നിർമിക്കും

പത്മപ്രഭാ സ്മാരക ട്രസ്റ്റിന്റെ ്വർഷത്തെ പത്മപ്രഭാ പുര സ്കാരത്തിന് ചെറുകഥാകൃത്ത് സ്ന്തോഷ് എച്ചിക്കാനം അർഹ നായെന്ന് ട്രസ്റ്റ് ചെയർമാൻ എം പി ്വീരേന്ദ്രകുമാർ എം പി കല്പ റ്റയിൽ അറിയിച്ചു

എയർ കസ്റ്റംസ് ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് അടിവസ്ത്രത്തിനുളളിലും ക്യാപ്സൂൾ രൂപത്തിൽ ശരീര ത്തിലും ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്